തെറ്റ് ചെയ്യുന്ന്വര്ക് സംരക്ഷിക്കില്ല

സ്വന്തം താല്പര്യങ്ങൾ അതേരീതിയിൽ പ്രകടിപ്പിക്കേണ്ട ഒരിടമല്ല പോലീസ് സേന എന്നും അദ്ദേഹം പറഞ്ഞു തൃശ്ശൂർ രാമവർമ്മപുരം പോലീസ് അക്കാഡമിയിൽ ആദ്യ കോസ്റ്റൽ പോലീസ് വാർഡന്മാരുടെ പരേഡ് സ്വീകരിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യ മന്ത്രി ലോക്കപ്പ് കസ്റ്റഡിമരണങ്ങൾ ഉൾപ്പെടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ യാദൃശ്ചികമാണ് എന്ന് കരുതാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തെറ്റ് ചെയ്താൽ കർക്കശ നടപടി എന്നതാണ് ഗവൺമെന്റ് നയം അത്തരം ചില നടപടികൾ വേണമെന്നാണ് കരുതുന്നത് ആത്മാർ ത്ഥമായി ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും ഗവൺമെന്റ് ക്രൂശിക്കില്ല പോലീസിന് മാനുഷികമുഖം നൽകാനാണ് ഗവൺമെന്റ് ശ്രമം